അമേരിക്കൻ പ്രതിനിധി സഭയിൽ അൽപസമയത്തിനകം തുടങ്ങും

എന്നാൽ നിയമം സ്റ്റേ ചെയ്യാനുള്ള വാദി ഭാഗത്തിന്റെ ആവശ്യം കോടതി നിരാകരിച്ചു കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കെ

വേണുഗോപാൽ നിയമം സ്റ്റേ ചെയ്യണമെന്ന ഹർജ്ജിക്കാരുടെ ആവശ്യത്തെ എതിർത്തു നിയമം വിജ്ഞാപനം ചെയ്തതിനു ശേഷം അത് സ്റ്റേ ചെയ്യുന്നത് വിലക്കുന്ന നാല് ഉത്തരവുകൾ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി പൌരത്വ ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി ഇന്നലെ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു ജനുവരി രണ്ടാം വാരത്തിനുള്ളിൽ കേന്ദ്രം പ്രതികരണം അറിയിക്കണം

ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ജസ്റ്റിസുമാരായ ബി

ഗവായ് സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബഞ്ചാണ് കേസ് പരിഗണിച്ചത് പൌരത്വ നിയമ ഭേദഗതിയുക്കുട ഉള്ളടക്കങ്ങളെക്കുറിച്ചും ഉദ്ദേശ്യലക്ഷ്യങ്ങളെക്കുറിച്ചും സാധാരണ ജനുങ്ങ്കുള്ള ബോധവാന്മാരാക്കണ മെന്ന ഒരു അഭിഭാഷകന്റെ ആവശ്യവും ക്കോട്ടതി അംഗീകരിച്ചു ഇതിനായി ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന് കാര്യം പരിഗണിക്കണമെന്ന് കോടതി അറ്റോർണി ജനറലിനോട് നിർദ്ദേശിച്ചു ഇത് അംഗീകരിച്ച അറ്റോർണി ജനറൽ ഗവൺമെന്റ് വേണ്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചു പാകിസ്ഥാൻ അഫ്ജാന്റിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മത ന്യൂക്പക്ഷങ്ങളായ ഹിന്ദു ക്രിസ്റ്റ്യൻ സിഖ് പാഴ്സി ജെയിൻ ബുദ്ധ മത്തിക്ക്ാർക്ക് പൌരത്വം നൽകുന്ന പൌരത്വ ഭേദഗതി നിയമം അടുത്തിടെയാണ് പാ്ർലമെന്റ് പാസ്സാക്കിയത്

കുട്ടികളെ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും വിലക്കണമെന്ന് മാതാപിതാക്കളോട് സംസ്ഥാന പോലീസ് മേധാവി ഒ

പ്രതിഷേധം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കുട്ടികളെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മാതാപിതാക്കൾ അനുവദിക്കരുതെന്നും പോലീസ് മേധാവി ട്വിറ്റർ സന്ദേശത്തിൽ അഭ്യർത്ഥിച്ചു

ഐ ആർ രജിസ്റ്റർ ചെയ്തതായാണ് റിപ്പോർട്ട്

പി കീഴിൽ കൊണ്ടുവരാനുള്ള നിയമം പാസ്റ്റാക്കുന്നതിനായി സംസ്ഥാന നിയമസഭ ഇന്ന് പ്രത്യേക സമ്മേളനം ചേരും രാജ്യത്ത് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഐ

പി നടപ്പാക്കണമെന്ന് ആവശ്യം വിവിധ സാമൂഹിക സംഘടനകളും പൊതുസമൂഹവും ശക്തമാക്കിയിട്ടുണ്ട്

എൽ പി നിയമം നടപ്പാക്കണമെന്ന ആവശ്യം കേന്ദ്രത്തോട് ഉന്നയിക്കാനുള്ള ഔദ്യോഗിക നീക്കങ്ങൾക്ക് മേഘാലയ ഗവൺമെന്റ് ഈയിടെയാണ് ഐകകണ്ഠ്യേന അംഗീകാരം നൽകിയത്

ടി കൌൺസിൽ യോഗം തീരുമാനിച്ചു

എസ് ടി കൌൺസിൽ യോഗത്തിൽ ആദ്യമായി വോട്ടെടുപ്പിലൂടെയാണ് ലോട്ടറി നികുതി സംബന്ധിച്ച് തീരുമാനമെടുത്തത്

നികുതിദായകരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാന മേഖലാ തല പ്രശ്നപരിഹാര സമിതികൾ രൂപീകരിക്കും

പ്രതിരോധ സാങ്കേതിക വിദ്യ കൈമാറ്റം സാധ്യമാക്കുന്ന ഒരു വ്യാവസായിക സുരക്ഷാ കരാറിൽ ഇരുരാഷ്ട്രങ്ങളും ഒപ്പുവച്ചു

എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക് പോംപിയോയും പ്രതിരോധ സെക്രട്ടറി മാർക് എസ്പറും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിങും പങ്കെടുത്തു പ്രതിരോധ മേഖലയിൽ ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്നും അത് കൂടുതൽ മെച്ചപ്പെടുമെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി എസ്പർ നാലു നേതാക്കളുടെയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

മഹാർമ്മാ ഗാന്ധിയുടെ സന്ദേശങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന്നായി ്ഗവൺമെന്റ് രാജ്യാന്തര തലത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ശ്രാഷ്ട്രപതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സമിതി രൂപവത്കരിച്ചിട്ടുള്ളത് ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രിൂ ്മുഖ്യമന്ത്രിമാർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഗാന്ധിയന്മാർ ് വിവിധ മേഖലയിലെ വിദഗ്ദ്ധർ തുടങ്ങിയവർ സമിതിയിൽ അംഗങ്ങളാണ് ഐക്യരാഷ്ട്ര സഭ മുൻ സെക്രട്ടറിമാരായ കോഫി അന്നൻ ബാൻ കീ മൂൺ എന്നിവർ ഉൾപ്പെടെ ഒമ്പത് അന്താരാഷ്ട്ര അംഗങ്ങളും സമിതിയിൽ അംഗങ്ങളാണ്

വധശിക്ഷയ്ക്കെതിരെ പ്രതികളിൽ ഒരാളായ അക്ഷയ് കുമാർ സിംഗ് സമർപ്പിച്ച പുനഃപരിശോധന ഹർജി സുപ്രീം കോടതി തള്ളി

പുനഃപരിശോധന ഹർജിയിൽ പ്രതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ നേരത്തേ തന്നെ പരിഗണിച്ചിരുന്നുവെന്ന് കോടതി പറഞ്ഞു പുനഃപരിശോധന ഹർജിയെ എതിർത്ത സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പ്രതി ദയ അർഹിക്കുന്നില്ലെന്ന് വാദിച്ചു ചില കുറ്റകൃത്യങ്ങൾ പൊറുക്കാനാവില്ലെന്നും ഇത് അത്തരത്തിൽ ഒരു കേസാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശിക്ഷ നടപ്പാക്കുന്നത് വൈകിപ്പിക്കാനാണ് പ്രതികൾ ശ്രമിക്കുന്നതെന്നും അതനുവദിക്കരുതെന്നും സോളിസിറ്റർ ജനറൽ അഭിപ്രായപ്പെട്ടു കോടതി തീരുമാനത്തിൽ നിർഭയയുടെ അമ്മിസംതൃപ്തി പ്രകടിപ്പിച്ചു

പോക്സോ കേസുകളിലും ബലാൽസംഗ കേസുകളിലും അതിവേഗം തീർപ്പ് കൽപ്പിക്കാനുള്ള പുതിയ പദ്ധതി കേന്ദ്ര നിയമ മന്ത്രാലയമാണ് ആവിഷ്ക്കരിച്ചത്

ഇന്ത്യാ ശ്രീലങ്ക സമുദ്ര മേഖലാ ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ് സന്ദർശനം ശ്രീലങ്കൻ നാവികസേന കമാൻഡർ അഡ്മിറ്റൽ ഉക

എച്ച് ഡേ സിൽവയുമായും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥത്യുമായും അഡ്മിറൽ കരംബീർ സിങ് ചർച്ച നടത്തും

ഇന്ത്യൻ ഓഷൻ നേവൽ സിംബോസിയത്തിലെ അംഗമാണ് ശ്രീലങ്ക

അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രണ്ട് ഹാഡ്രിക് നേടിയ ആദ്യ ഇന്ത്യൻ കളിക്കാരൻ എന്ന ബഹുമതി കുൽദീപ് സ്വന്തമാക്കി

രോഹിത് ശർമ്മ കെ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് നടപടികളിൽ അൽപ്പസമയത്തിനകം അമേരിക്കൻ പ്രതിനിധി സഭയിൽ വോട്ടെടുപ്പുണ്ടാകും സഭയിൽ വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് അധികാരം ദുർവിനിയോഗം ചെയ്തതും ഉക്രൈയ്നുമായുള്ള തന്റെ നടപടികൾ സംബന്ധിച്ച് കോൺഗ്രസ്സിനെ തടസ്സപ്പെടുത്തിയതുമാണ് ട്രംപിനെതിരെയുള്ള ആരോപണങ്ങൾ ഡെമോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന്റെ അധോസഭയിൽ സ്പീക്കർ നാൻസി പെലോസി ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു ട്രംപിനെ ഇംപീച്ച് ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം സെനറ്റിൽ വിചാരണ ആരംഭിക്കും എന്നാൽ റിപ്പബ്ലിക്കുകളുടെ നിയന്ത്രണത്തിലായതിനാൽ മുൻ പ്രസിഡന്റുമാരായ ബിൽ ്ക്സിന്റനെയും ആൻഡ്രൂ ജോൺസണെയും പോലെ ട്രംപും കുറ്റവിമുക്തനാക്കപ്പെടാൻ സാധ്യതയുണ്ട്